മുതിർന്ന ബി ജെ

നേതാവ് നരേന്ദ്രമോദിക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ക്ഷണം

ജെ

അവകാശവാദവുമായി ക്രാന്തികാരി മോർച്ച നേതാക്കൾ ഗവർണറെ കണ്ടു

കപ്പിന് ജർമ്മനിയിൽ തുടക്കം

ജെ

മോദിയെ പ്രധാനമന്ത്രിയായി പ്പുമ്ത്ലപ്പെടുത്തിയ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭ അംഗങ്ങളെ നിയമ്പിക്കാനും നിർദ്ദേശം നൽകി രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യക്ത്രിജ്ഞാ ചടങ്ങിന്റെ തീയതിയും സമയവും വ്യക്തമാക്കാനും ശ്രീ

നരേന്ദ്രമോദി അവകാശവാദം ഉന്നയിച്ചതോടെയായിരുന്നു രാഷ്ട്രപതിയുടെ ക്ഷണം

പുതിയ മന്ത്രിസഭി രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ചതായും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മന്ത്രം രാജ്യത്തിന്റെ എല്ലാ മേഖലയിലേയും വികസനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഠിന പ്രയത്നത്തേയും സത്യസന്ധതയേയും രാജ്യം മാനിക്കുന്നതായും അതാണ് രാജ്യത്തിന്റെ ശക്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ശക്തിയും ഒത്തൊരുമയുമാണ് എൻ

എ യുടെ പ്രത്യേകതയെന്നും സഖ്യകക്ഷികളോട് തോൾ ചേർന്ന് പോകണമെന്നും അദ്ദേഹം ആഹാനം ചെയ്തു മതത്തിന്റേയോ ിജാതിയുടെയോ പേരിൽ ആരെയും വ്യത്യസ്തരാക്കരുതെന്നു പിന്നിൽ ഉപേക്ഷിക്കരുതെന്നും ശ്രീ

വെങ്കയ്യ നായിഡുവുമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി

ഡി എയുടെ നേതാവായും അടുത്ത പ്രധാനമന്ത്രിയായും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ശ്ര

വികസനവും ഭരണഘടന നിർമ്മാണ സഭകളെ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തു

ആന്ധ്രാപ്രദേശിന്റെ നിയമസഭാ നേതാവായി ഇന്നലെ ജഗൻമോഹൻ റെഡ്സിയെ തെരഞ്ഞെടുത്തിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ശ്രീ ജഗ്ന്റെ മോഹൻ റെഡ്നി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും

വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര മേൽക്കുന്നതിന് മുമ്പായി മാതാവിനെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയ്ക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും വമ്പിച്ച വരവേൽപ്പാണ് അഹമ്മദാബാദിൽ പാർട്ടി ഇന്ന് ഒരുക്കിയിട്ടുള്ളത് അദ്ദേഹം സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുമെന്നും ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്തു

ജെ

പാർട്ടിയംഗങ്ങൾ ഇന്ന് ഭുവനേശ്വറിൽ ഒത്തു ചേരും സത്യപ്രതിജ്ഞാ ചടങ്ങ് ബുധനാഴ്ച നടന്നേക്കും

ജെ

ജെ

നേതാവ് സുരേന്ദ്ര സിംഗ് അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു കൊലപാതകത്തിനു പിന്നിലുള്ള കാരണം വ്യക്തമായിട്ടില്ല കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പഴയ ശത്രുതയാകാം കൊലപാതകത്തിന് കാരണമെന്ന് സംസ്ഥാന ഡി ജി

കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏഴോളം പേരെ കസ്റ്റഡിയിൽ എടുത്തായി ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്തു

ജെ

സ്മൃതി ഇറാനിയുടെ അടുത്ത സഹായിയാണ് കൊല്ലപ്പെട്ട സുരേന്ദ്ര സിംഗ്

അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ആറാമത് പൊതു തെരഞ്ഞെടുപ്പിനുശേഷം നടന്ന പാർലമെന്റ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് തലവൻ രാമഫോസെയെ ഔദ്യോഗികമായി പ്രിസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു അഴിമിട്ടു് ആരോപണത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് ജേക്കബ് സുമു കീഴിഞ്ഞ ഫെബ്രുവരിയാണ് രാജി വെച്ചത്

പുരോഗമന വാദിയായ മുസ്തീം യുവാവിന്റെ കഥ പറഞ്ഞ യെംഗ് അഹമ്മദാണ് പുരസ്കാരം ഡാർഡീൻ സഹോദരങ്ങൾക്ക് നേടിക്കൊടുത്തത് പെയിൻ ആന്റ് ഗ്ലോറി എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് അന്റോണിയോ ബാന്ററാസ് മികച്ച നടനുള്ള പുരസ്കാരം നേടി

ലിറ്റിൽ ജോയ് എന്ന ചിത്രത്തിലെ അഭിനയ മികവാണ് യെമിലിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്

വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾസ് മത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകുന്നത്

നൊവാക് ദോക്കിയോവിച്ച് നവാമി ഒസ്സാക്ക റഫേൽ നദാൽ ഷിമോണ ഹാലക്ക് റോജർ ഫെഡറർ കരോളിന പ്ലിസ്ക്കോവ ഡൊമനിക് തീം അലക്സാണ്ടർ സ്വരേവ് സെറീന വില്ല്യംസ് വീനസ് എന്നീ താരങ്ങൾ ടൂർണമെന്റിൽ ഉൾപ്പെടുന്നു പതിറ്റാണ്ടുകളായി ടെന്നീസിലെ മുൻനിര ചാമ്പ്യൻമാരായ ത്രിമൂർത്തികൾ തന്നെയാണ് റൊളാംഗ് ഗാരോയിൽ ആദ്യ റൌണ്ടിന് കളിക്കുന്നത്

ആദ്യ ഗ്രാന്റ് സ്താമിൽ കളിക്കുന്ന ഒരേഒരു ഇന്ത്യൻതാരം പ്രജ്ണ്ട്രേഷ് ഗുണേശ്വരൻ ആണ്

പുരുഷ ഡബിൾസിൽ കളിക്കുന്നു

വിവാഹ മോചന കേസ് ഫയൽ ചെയ്ത് രണ്ടുവർഷത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം യൂറോപ്പിൽ വിവാഹമോചന നിയമത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് അയർലന്റ്

പിമാർ പ്രതിപക്ഷ ചേരിയിൽ ചേർന്നതിനെത്തുടർന്ന് പ്രസിഡന്റ് സ്ഥാനം പീറ്റർ ഒ നീൽ രാജി വച്ചു പാർലമെന്റിൽ ഭൂരിപക്ഷം നില നിർത്തിയിരുന്നു

നിലവിൽ രണ്ട് തവണ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കുമിച്ചിരുന്ന സർ ജൂലിയസ് ഛനിനാണ് ഭരണച്ചുമതല

വെനസ്വേലയിൽ ഭരണ പ്രതിപക്ഷ പാട്ടികൾ തമ്മിലുള്ള ചേരിതിരിവിന്റെ പുതിയ വഴിത്തിരിവായാണ് പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികളുടെ പ്രത്യേക സന്ദർശനത്തെ വിലയിരുത്തുന്നത് അടുത്ത ആഴ്ച നടക്കുന്ന കൂടിക്കാഴ്ച ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഉൌട്ടിയുറപ്പിക്കുന്ന സുപ്രധാന തീരുമാനങ്ങളെ പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികൾ ചോദ്യം ചെയ്യാനാണ് സാധ്യത

തീരദേശ പോലീസ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കടലോരത്ത് ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതേത്തുടർന്ന് കടലിലും കരയിലും പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്

കാറിൽ കടത്തുകയായിരുന്ന ലഹരി മരുന്നായ എം